മുരളീധരൻ

എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെയും കിങ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും

മുരളീധരൻ ഉല്പന്നങ്ങൾ എവിടെ വിപണനം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കർഷകർക്ക് നൽകുന്നതാണ് പുതിയ കാർഷിക ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി

കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിപണി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്രൃം കർഷകന് നൽകുന്ന സംവിധാനമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് ഒരു കാലത്ത് ഇന്തൃ ഭക്ഷൃ വസ്തുക്കൾ ഉല്പാദിപ്പിക്കുന്നതിൽ ക്ഷാമം നേരിട്ടിരുന്ന രാജ്യമായിരുന്നു എന്നാൽ ഇന്ന് ഭക്ഷ്യോല്പാദനത്തിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആമിന നജുമ

മരണസംഖ്യയിലും തിരുവനന്തപുരം തന്നെയാണ് മുന്നിൽ

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് ഉള്ളത് എറണാകുളം ജില്ലയാണ്

ഏറ്റവും കുറവ് രോഗബാധിതർ വയനാട് ജില്ലയിലാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി എറണാകുളം കളക്ടർ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സെക്ടർ മജിസ്ട്രേറ്റുമാരായി നിയോഗിച്ചു കൊണ്ട് എറണാകുളം കളക്ടർ ഉത്തരവിട്ടു തങ്ങളുടെ അധികാര പരിധിയിൽ പ്രദേശത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വില്യിരുത്തുന്ന ചുമതലയാണ് ഇവർക്ക് നൽകിയിര്യിക്കുന്ന്ത് ആരോഗ്യം പോലീസ് റവന്യൂ തുടങ്ങിയവയ്ക്ക് പുറമെയിുള്ള വകുപ്പുകളിൽ നിന്നാണ് ദുരന്തനിവാരണ നിയമപ്രകാരം ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ ലൂംച്ചിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഇവർക്ക് ിആധികാരമുണ്ടായിരിക്കും

കൊവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് കൊല്ലം നഗരത്തിലെ തങ്കശ്ശേരി മൂതാക്കര വാടി കൊല്ലം പോർട്ട് ജോനകപ്പുറം എന്നീ ഹാർബറുകളിൽ നിന്ന് യാനങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നതിലും നിരോധനം ഏർപ്പെടുത്തി

ബീച്ചുകളിൽ രാവിലെയും വൈകിട്ടുമുള്ള നടത്തം ഉൾപ്പെടെയാണ് നിയന്ത്രിച്ചിട്ടുള്ളത് വിനോദസഞ്ചാരസ്ഥലങ്ങൾ പാർക്കുകൾ എന്നിവിടങ്ങളിലും കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

മറ്റ് അസുഖങ്ങൾ മൂലം അവശതയിലാീയിരുന്ന ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ രോഗികളുടെ എണ്ണം ഏഴ് കോടി അറുപത് ലക്ഷം പിന്നിട്ടു

എസ് ഗരുഡയിൽ നിന്നുള്ള പരിശീലന പറക്കലിനിടെ ഗ്ലൈഡർ കൊച്ചി തോപ്പുംപടി പാലത്തിന് സമീപം ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തകർന്ന് വീഴുകയായിരുന്നു

സംഭവത്തിൽ ദക്ഷിണ നാവിക കമാൻഡ് അന്നേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി ക്യാംപ്പെയ്ിൻ നിരക്ഷരത അനാരോഗ്യ് ഭൌതിക ജീവിത സാഹചര്യങ്ങളുടെ നിഷേധം ലൈംഗിക പീഡനങ്ങൾ തുടങ്ങി എല്ലാതരം സാമൂഹിക ദുരന്തങ്ങളുടെയും ആകെ തുകയാണ് ഇന്ത്യൻ സ്ത്രീകളുടെ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസ്സോസിയേഷന്റെ ഇടതുപക്ഷം സ്ത്രീ പക്ഷം വികസന പക്ഷം എന്ന ക്യാംപെയിനിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാഹിതരായ സ്ത്രീകളിൽ മൂന്നിൽ രണ്ട് പേർ കുടുംബത്തിനകത്ത് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരാണ് സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം ആവശ്യമാണ്

എസ് സുനിൽകുമാർ പറഞ്ഞു

അനിയന്ത്രിതമായി പാറ പൊട്ടിച്ചു നീക്കിയതാണ് ഈ പ്രദേശത്ത് മലയിടിച്ചിലുണ്ടാകാൻ കാരണമെന്നാണ് റിപ്പോർട്ട്

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ